രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു

രാജസ്ഥാനിൽ കാർഷിക് വായ്പകൾ എഴുതിത്തള്ളാൻ തീരുമാനം അസ്മിൽ കർഷക ക്ഷേമത്തിനായി മൂന്ന് പുതിയ പദ്ധതികൾ

സുരക്ഷിതവും നിയമാനുസൃതവുമായ രാജ്യാന്തര കുടിയേറ്റം സംബന്ധിച്ച് യു എൻ കരാർ കൊണ്ടു വരുന്നു

പത്ത് മിനിറ്റ് രാജ്യസഭ സമ്മേളിച്ച ശേഷം അധ്യക്ഷൻ എം വെങ്കയ്യ നായിഡു സഭ ഇന്നത്തേക്ക് പിരിച്ചുവിട്ടു റഫേൽ വിഷയത്തിൽ കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടപ്പോൾ എ ഐ എ ഡി എം കെ ഡി എം കെ പ്രവർത്തകർ കാവേരി വിഷയത്തിൽ ശാശ്വത പരിഹാരമാവശ്യപ്പെട്ട് പ്ലക്കാർഡുകളുമേന്തി ബഹളം വെച്ചു റഫാൽ വിഷയത്തിൽ കേന്ദ്രമന്ത്രി വിജയ് ഗോയൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയുടെ പേര് പരാമർശിച്ചിട്ടില്ലെന്ന് സഭാധ്യക്ഷൻ മൂളിംഗ് നൽകി എന്നാൽ പരാമർശം ഉണ്ടായെന്ന് കോൺഗ്രിസ് നേതാവ് ആനന്ദ് ശർമ്മ പറഞ്ഞു ശ്രീ വിജയ് ഗോർയലിന്റെ അവകാശവാദം ശരിയാണെന്ന് അധ്യക്ഷൻ പ്യക്ത്മാക്കി ഇത് ഭരണ പ്രതിപക്ഷ വാക്കേറ്റത്തിന് ഇടയാക്കി റഫാൽ വിഷയത്തിൽ ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് രേഖാമൂലം അറിയിച്ചിട്ടുള്ളതായി ശ്രീ വെങ്കയ്യ നായിഡു വ്യക്തമാക്കി എന്നാൽ സഭാതലം കൂടുതൽ പ്രക്ഷുബ്ധമായതോടെ രാജ്യസഭ ഇന്നത്തേയ്ക്ക് പിരിച്ചുവിട്ടു തുടർച്ചയായി എട്ടാം ദിവസമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ രാജ്യസഭ പിരിയുന്നത്

ആർ

സി കേസിൽ ആർ

പ്രസാദ് യാദവിന് ഡൽഹി കോടതി ഇടക്കാല ജാമ്യം ലാലു അനുവദിച്ചു

ജയിലിൽ കഴിയുന്ന ലാലുവിനെ റാഞ്ചി വീഡിയോ കോൺഫറൻസിങിലൂടെയാണ് വിചാരണ നടത്തിയത് സിബിഐ യും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഴിമതി കേസുകളിലാണ് കോടതി ഇടക്കാല ജാമൃം അനുവദിച്ചത് സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ നേരത്തെ ലാലുവിന്റെ ഭാര്യ റാബ്രിദേവിക്കും തേജസ്വി യാദവിനും മകൻ ജാമ്യാ അനുവദിച്ചിരുന്നു

ജമ്മുകാശ്മീരിന്റെ വികസനത്തിന് താനും തന്റെ ഗവൺമെന്റും തദ്ദേശ ഗവൺമെന്റിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ജനങ്ങൾ ഗവൺമെന്റിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതിനാൽ ജനതാൽപര്യങ്ങൾക്ക് ഉൌന്നൽ നൽകണമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ഭീഷണിയും ആശങ്കയും നിലനിന്ന ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയായ പ്രാദേശിക നേതാക്കളെ അദ്ദേഹം അഭിനന്ദിച്ചു ജനങ്ങളുടെ ആവശൃങ്ങൾ മനസിലാക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുമെന്നും പഞ്ചായത്തീരാജ് മാതൃക നടപ്പാക്കാൻ ഗവൺമെന്റ് പൂർണ്ണ പിന്തുണ നൽകുമെന്നും പ്രധാനമന്ത്രി ഉറപ്പുനൽകി അതേസമയം ആറ് മാസത്തെ ഗവർണർ ഭരണത്തിനുശേഷം ജമ്മുകാശ്മീരിൽ ഇന്നലെ പ്രസിഡന്റ് ഭർണം നിലവിൽ വന്നു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കി ന്യൂസ് ഡെസ്ക് ആകാശവാണ്ി

ജി മാരുടെയും മൂന്ന് ദിവസത്തെ വാർഷിക സമ്മേളനത്തിന് ഗുജറാത്തിൽ ഇന്ന് തുടക്കമാകും നർമ്മദ ജില്ലയിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് സമീപം ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിങ്ങിന്റെ സാന്നിദ്ധൃത്തിലാണ് സമ്മേളനം നടക്കുക നാളെ മുതൽ രണ്ട് ദിവസം സംസ്ഥാനം സന്ദർശിക്കാനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു ജമ്മുകാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അതിർത്തി കടന്നുള്ള ഭീകരവാദം യുവാക്കളെ ഉൽപ്പതിഷ്ണുക്കൾ ആക്കാനുള്ള ശ്രമം എന്നിവ വാർഷിക യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു

അസ്സം കർഷകർക്കുളള വായ്പ സബ്സിഡി പദ്ധതിപലിശയിൽ ഇളവ് നൽകുന്ന പദ്ധതി പ്രോത്സാഹക പദ്ധതി എന്നിവയാണ് ക്ഷേമ പദ്ധതികൾ ആദ്യഘട്ടത്തിൽ മൂന്ന് പദ്ധതികളും അഞ്ച് ലക്ഷത്തോളം കർഷകർക്ക് പ്രയോജനപ്പെടുമെന്ന് അസ്സം മുഖ്യമന്ത്രി ഹിമാന്ത ബിശ്വ ശർമ്മ ഗുവാഹട്ടിയിൽ മാദ്ധ്യമങ്ങളോട് പറഞ്ഞു

നവോദയ സ്കൂൾ മാതൃകയിൽ പ്രത്യേക സൌകരൃങ്ങളോടെയാണ് ഏകലവൃ സ്കൂളുകൾ ആരംഭിക്കുക കായിക നൈപുണ്യ വികസനത്തിനും കലാ സാംസ്കാരിക പരിശീലനത്തിനും പ്രാധാന്യം നൽകുമെന്നും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ അറിയിച്ചു

തോട്ടം തൊഴിലാളികൾക്കുള്ള ചായ് ബഗിച ആനുകൂല്യ പദ്ധതിയുടെ രണ്ടാം ഗഡു നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് അനുമതി നൽകി

സിറിയയുടെ തീവ്രവാദി സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ്സിനെ തോൽപ്പിക്കാനായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്തു ഇതേ തുടർന്ന് യു എസ് സേന സിറിയയിൽ നിന്ന് പിൻമാറി തുടങ്ങിയതായി വൈറ്റ് ഹൌസ് അറിയിച്ചു അഞ്ച് വർഷം മുമ്പ് ഐ എസ് മധ്യപൂർവ്വ മേഖലയിൽ വളരെ ശക്തമായിരുന്നുവെന്നും ഇപ്പോൾ അവളര പരാജയപ്പെടുത്താൻ സാധിച്ചുവെന്നും വൈറ്റ് ഹൌസ് പ്രിസ്സ് സെക്രട്ടറി സാറാ സാൻഡേഴ്സ് പ്രസ്താവനയിൽ പറ്റഞ്ഞു എന്നാൽ ഈ വിജയം ആഗോള ഏകീകരണം പ്രസിദ്ധിക്കും അവസാനിപ്പിക്കുന്നതിന്റെ സൂചനയല്ലെന്നും സാറാ സാൻഡേഴ്സ് കൂട്ടിച്ചേർത്തു

പി എൻ ബി മുംബൈ ശാഖയുടെ പരാതിയിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഈ വർഷം മാർച്ചിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതായി സി ബി ഐ അറിയിച്ചു പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കബളിപ്പിച്ച കേസിലും വ്യാജവും കൃതൃമവുമായ രേഖകൾ നൽകിയതിനുമെതിരെയാണ് കേസ് ഇവരെ മുംബൈ കോടതി മുമ്പാകെ ഹാജരാക്കിയതായും നാളെ വരെ പോലീസ് വിചാരണ തടവിൽ വിട്ടതായും സി ബി ഐ അറിയിച്ചു

സിരിസേനയുടെ നേതൃത്വത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് യുണൈറ്റഡ് നാഷണൽ പാർട്ടി നേതാവ് റെനിൽ വിക്രമസിംഗെ പ്രധാനമന്ത്രിയായി ഞായറാഴ്ച അധികാരമേറ്റതിന് പിന്നാലെയാണ് മന്ത്രിമാർ ചുമതലയേറ്റത് ഇതിൽ മിക്ക മന്ത്രിമാരുടെയും ന്റെർത്ത്യുള്ള വകുപ്പുകൾ നിലനിർത്തിയിട്ടുണ്ട്

ക്രമസമാധാന്ത്തിന്റെ ചുമതല പ്രസിഡന്റിനായിരിക്കും

എന്നാൽ അടുത്ത വർഷം പലിശനിരക്ക് കുറയ്ക്കുമെന്നും സൂചനയുണ്ട്

വായ്പാ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെതിരെ കഴിഞ്ഞ ആഴ്ചകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നടിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വർദ്ധന അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഇത് വെല്ലുവിളിയാകുമെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി എന്നാൽ ട്രംപിന്റെ പ്രതികരണം സെൻട്രൽ ബാങ്കിന്റെ തീരുമാനങ്ങളെ ബാധിക്കില്ലെന്ന് വാർത്താലേഖകരോട് പറഞ്ഞു

എന്നാൽ ചെക്ക് റിപ്പബ്ലിക് ഹാങ്കറി ഇസ്രായേൽ പോളണ്ട് അമേരിക്ക എന്നീരാജൃങ്ങൾ ഉടമ്പടിയെ എതിർത്തു